വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച പുസ്തകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകാശനം ചെയ്തു

കേരളത്തിൽ എലിപ്പനിക്കെതിരെ ജാഗത്രാ നിർദ്ദേശം

പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കി

വെങ്കയ്യനായിഡു പദവിയിൽ ഒരുവർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച മൂവിംഗ് ഓൺ മൂവിംഗ് ഫോർവേർഡ് എ ഇയർ ഇൻ ഓഫീസ് എന്ന പുസ്തകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകാശനം ചെയ്തു

വെങ്കയ്യനായിഡു കഠിനാധാനം ഉച്ചിയ്യുന്ന വൃക്തിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ശ്രീ നായിഡുവിനോടൊപ്പം വള്ളിൽ വർഷം ജോലിചെയ്യാനുള്ള അവസരം ലഭിച്ചതായും കൃത്യൂനിഷ്ഠയ്ക്കാണ് അദ്ദേഹം ഏറ്റവും വിലകൽപ്പിക്കുന്നതെന്നും ശ്രീ

എല്ലാ മേഖലകളിൽപ്പെട്ട ആളുകളുമായും മികച്ച ബന്ധം സ്ഥാപിക്കുന്നതിൽ ശ്രീ വെങ്കയ്യനായിഡു അഗ്രഗണ്യനാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു

എ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളാണ്നിഷ്ക്രിയ ആസ്തികൾ വർദ്ധിക്കാൻ കാരണമായതെന്നും ഇത്തരം നയങ്ങൾ ബാങ്കിംഗ് മേഖലയെ തകർച്ചയിലേക്ക് നയിച്ചതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡെൽഹിയിൽ ഇന്ത്യ പോസ്ററ് പേയ്മെന്റ്സ് ബാങ്കിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്നാൽ എൻ

സൈപ്രസ് ബൾഗേറിയ ചെക്ക് റിപ്പബ്ലിക്ക് എന്നീ രാഷ്ട്രങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്

വോയിസ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സൈപ്രസിൽ എത്തിച്ചേരുന്ന ശ്രീ രാംനാഥ് കോവിന്ദ് സൈപ്രസ് പ്രസിഡന്റ് നികോസ് അനസ്തേ സിയാദാസുമായി കൂടിക്കാഴ്ച നടത്തും

ചൊവ്വാഴ്ച ബൾഗേറിയ സന്ദർശിക്കുന്ന ശ്രീ രാം നാഥ് കോവിന്ദ് ബൾഗേറിയൻ പ്ര്യൂസിഡന്റ് രാദേവുമായും പ്രധാനമന്ത്രി ബോയ്കോ ബോറ്റിസ്സെറ്റ്വുമായും കൂടിക്കാഴ്ച നടത്തും

ചെക്ക് രാഷ്ട്രപതി മീലോസ് സെമാനമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര സഹകരണത്തെക്കുറിച്ച് ശ്രീ

ഇരുരാജ്യങ്ങളിലെയും വാണിജ്യ പ്രതിനിധികളെ അദ്ദേഹം അഭിസംബോധന ചെയ്യും തുടർന്ന് ചാൾസ് സർവ്വകലാശാലയിലെ വിദ്യാർത്ഥികളുമായും കൂടിക്കാഴ്ച നടത്തും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വൃാജ മരുന്നുകൾ ഒഴിവാക്കി വിശ്വാസയോഗ്യമായ പോർട്ടലുകൾവഴി യഥാർത്ഥ മരുന്നുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി നിശ്ചിത രജിസ്ട്രേഷനില്ലാതെ ഇ ഫാർമസി വഴി മരുന്നുകൾ ഓൺലൈൻ വിൽപ്പന നടത്തുകയോ സ്റ്റോക്കുചെയ്യുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ലും എന്ന് കരട് നിയമത്തിൽ പറയുന്നു ഇത് സംബന്ധിച്ച് ര്ജിസ്ട്രേഷനായി സെൻട്രൽ ലൈൻസിങ് അതോറിറ്റിയിൽ ആപ്പേക്ഷിക്കാമെന്ന് കേന്ദ്ര ഡ്രഗ്സ് കൺട്രോളർ ഈശ്വര ഉപ്പ്സി പറഞ്ഞു എന്നാൽ മയക്കാൻ ഉപയോഗിക്കുന്ന മരൂന്നുകൾ മാനസിക രോഗങ്ങൾക്കുള്ള മരുന്നുകൾ തുടങ്ങിയ്പ ഓൺലൈനായി വിൽക്കാൻ അനുമതിയില്ല

ഐ

ചുമത്തി

സി യുടെ അഴിമതി നിരോധന നിയമം ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലായാണ് ഇവർക്കെതിരെ എഫ് ഐ

സമർപ്പിച്ചതെന്ന് മനേസർ ഡെപ്യൂട്ടി കമ്മീഷണർ രാജേഷ്കുമാർ പി

ഐ യോട് പറഞ്ഞു

എഫ് കമ്പനിക്ക് പിന്നീട് വിൽപ്പന നടത്തിയതായാണ് എഫ് ഐ

പറയുന്നത് മുഖ്യമന്ത്രിയുടെ സ്വാധീനം ഉപയോഗിച്ച് വ്യാപാര ലൈസൻസും സ്വന്തമാക്കിയതായി എഫ് ഐ

ഇന്ന് രാവിലെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത് ഷോപ്പിയാനിലെ ലാദി ഇമാം സാഹിബ് പ്രദേശത്ത് തീവ്രവാദിക്കൾ ഉണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് സൈന്യം തെരച്ചിൽ നടത്തിയിരുന്നു ഈ പ്രദേശത്ത് മൂന്ന് തീവ്രവാദികൾ കുടുങ്ങിയതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്

എലിപ്പനി ശക്തമായി നിയന്ത്രിക്കുന്നതിനു വേണ്ടി അന്താരാഷ്ട്ര മാനദണ്ഡമനുസരിച്ച് പ്രതിരോധം ചികിത്സ സാമ്പിൾ കളക്ഷൻ എന്നിവയിൽ പാലിക്കേണ്ട നിബന്ധനകൾ എന്നിവ ഉൾക്കൊള്ളിച്ച് ആരോഗൃവകുപ്പ് ചികിത്സ പ്രോട്ടോക്കോൾ പുറത്തിറക്കി മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരും ഏതെങ്കിലും രീതിയിൽ മലിനജലവുമായി ബന്ധപ്പെടുന്നവരും പ്രതിരോധഗുളിക കഴിക്കണമെന്നും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു

കഴിഞ്ഞ മാസം നിശ്ചയിച്ച യാത്ര പ്രളയക്കെടുതിയെ തുടർന്ന് മാറ്റിവയ്ക്കുകയായിരുന്നു ഇന്നലെ ഗവർണർ ജസ്റ്റ്യൂസ് പി സദാശിവത്തെ സന്ദർശിച്ച് പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച നടത്തിയ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുന്ന കാര്യവും അറിയിച്ചു

ജനുവരിയിൽ ആണ് ഈ സഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത് കഴിഞ്ഞ ആഗസ്റ്റിൽ ഭീകരർക്കെതിരെ കർശന നടപടികൾ നടപ്പാക്കണമെന്ന് യു

കനത്ത മൃഴയിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടായതിനെ തുടർന്ന് വിവിധ ഭാഗങ്ങളിൽ ഗതാഗത തടസ്സം അനുഭവപ്പെടുന്നു ഉത്തരാഖണ്ഡ് നാഗാലാന്റ് മണിപ്പൂർ ത്രിപുര ബീഹാർ ഉത്തർപ്രദേശ് ഹരിയാന ഡൽഹി പഞ്ചാബ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലെ ചിലഭാഗങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം അറിയിച്ചു

ആയുർവ്വേദവും യോഗയും മറ്റ് അനുബന്ധ സൌകര്യങ്ങളും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ചികിത്സാരീതികൾ ഇന്ത്യാ ഗവൺമെന്റിന്റെ പരിഗണനയിലാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു

ഉഭയുക്കുഷി വ്യാപാര കരാർ നിക്ഷേപം എന്നിവ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനാണിത്

ജപ്പാനിലെ സാമ്പത്തിക വ്യാപാര വൃവസായ മന്ത്രി ഹിരേഷിഗേ സീക്കോയുമായും അദ്ദേഹം ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി

കൂടുതൽ വിവരങ്ങളുമായി സുനീഷ്

വനിതാ സ്ക്കാഷ് ടീം ഹോങ്കോങ്ങുമായി ഏറ്റുമുട്ടി വെള്ളിമെഡൽ നേടി ഇന്ത്യൻ ഹോക്കി ടീം പാകിസ്ഥാനെ തോൽപ്പിച്ച് വെങ്കലമെഡൽ നേടി

ഇന്ത്യൻ മെഡൽ പട്ടികയിൽ രണ്ടാമത്തെ വലിയ നേട്ടം കൊണ്ടുവന്ന് ഷൂട്ടിംഗ് ഇനത്തിൽ നിന്നാണ് രണ്ട് സ്വർണ്ണവും നാല് വെള്ളിയും മൂന്ന് വെങ്കലവും ഈ ഇനത്തിൽ നിന്നും നേടി

മെഡൽ പട്ടികയിൽ എട്ടാം സ്ഥാനത്ത് ഇന്ത്യ ന്യൂസ് ഡെസ്ക് ആകാശവാണി